അസമിന്റെ വികസനത്തിനും സംസ്ഥാന്ത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ക്യേന്ദ്ര ഗവൺമെന്റ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബി ജെ

രാജസ്ഥാനിലെ കോട്ടയിലുണ്ടായ ശിശു മരണങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് ഒഴിയാനാകില്ലെന്ന് ഉപമുഖൃമന്ത്രി സച്ചിൻ പൈലറ്റ്

സംസ്കരണവും മൂല്യവർധനയും അടിസ്ഥാനമാക്കി കർഷകർക്ക് പരിശീലനം നൽകണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ വോയ്സ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് ഇന്ത്യൻ പിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു

റവലൂഷണറി ഗാർഡ് കമാർഡർ ഖാസിം സുലൈമാനിയെ വധിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും പ്രതിരോധ നടപടിയുടെ ഭാഗവുമായാണെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയൻ പറഞ്ഞു മധ്യേഷയിൽ സഞ്ചാരത്തിലായിരുന്ന ഖാസിം സുലൈമാനി സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് ഇറാഖിൽ എത്തിയപ്പോഴാണ് അമേരിക്കൻ ആക്രമണം ഉണ്ടായതെന്നും റോബർട്ട് ഒബ്രിയൻ പറഞ്ഞു അമേരിക്കൻ സൈനികരെയും നയതന്ത്രജ്ഞരെയും കൊലപ്പെടുത്താൻ സുലൈമാനി പദ്ധതിയിട്ടിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു സുലൈമാനിയെ വധിച്ചതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശത്ത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്ന റവലൂഷണറി ഗാർഡിന്റെ ഖുദ്സ് സേനയുടെ തലവനായിരുന്നു ഖാസിം സുലൈമാനി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇറാക്കിലെ ബാഗ്ദാദിലുള്ള അമേരിക്കൻ എംബസി ഇറാൻ പിന്തുണയുള്ള ജനകീയ സേന ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സൈനികർ കുവൈറ്റിലെത്തിയത്

ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കമൂലം ഇറാഖിലുള്ള അമേരിക്കൻ പൌരന്മാർ അവിടം വിടണമെന്ന് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്

അമ്മാനിൽ നിന്ന് ബാഗ്ദാദിലേക്കുള്ള സർവീസുകൾ സുരക്ഷാ കാരണങ്ങളാലാണ് നിർത്തിവച്ചതെന്ന് റോയൽ ജോർദ്ദാനിയൻ അറിയിച്ചു അതേസമയം ഇറാഖിലെ നജഫ് ബസ്ര എർബിൽ സുലൈമാനിയ എന്നിവിടങ്ങളിലേക്ക് പതിവുള്ള സർവീസ് നടത്തും

ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ പറഞ്ഞു

പുതുതായി വരുന്നവർക്ക് പൌരത്വം നൽകുന്നതിന് ഉദ്ദേശിക്കുന്നില്ല ഗുവാഹത്തിയിൽ ബി ജെ

സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് കോൺഗ്രസും ഇടതു പാർട്ടികളും തെറ്റിദ്ധാരണകൾ പരത്തുകയാണെന്ന് അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ റാലിയിൽ പറഞ്ഞു

ജെ

പാകിസ്ഥാൻ പോലുള്ള അയൽരാജ്യങ്ങളിലെ മതപരമായ പീഡനത്തെ തുടർന്ന് ഇന്ത്യയിൽ എത്തിയവർക്ക് പൌരത്വം നൽകാനുള്ള നിയമം കൊണ്ടുവന്നത് ഉചിതമായ കാര്യമാണെന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നതായി പാർട്ടി വക്താവ് മീനാക്ഷി ലേഖി ന്യൂഡൽഹിയിൽ പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിയുടെ പ്രാധാന്യം ഇതിനെ എതിർക്കുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു

സി

ഭരണമുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള ഭിന്നത മൂലമാണ് വകുപ്പുകൾ വിഭജിച്ച് നൽകാൻ സമയമെടുക്കുന്നതെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് എൻ സി

തിങ്കളാഴ്ച വകുപ്പുകൾ മന്ത്രിമാർക്ക് നൽകാനാണ് സാധ്യതയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി

സംഭവത്തിൽ ഗവൺമെന്റിന്റെ പ്രതികരണം ശരിയായ രീതിയിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു

ലോൺ ആശുപത്രിയിൽ ശിശുക്കൾ കൂട്ടമായി മരിച്ചതിനെ തുടർന്ന് ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടുന്ന ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയിലെത്തി കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ വോയ്സ് ശിശുമരണം സംബന്ധിച്ച് സ്ഥിതിഗതി മനസ്റ്റിലാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കാനുമായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്

അതേസമയം ജെ

ലോൺ ആശുപത്രിയിൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ആവർത്തിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന ആരോഗ്യമന്ത്രി രഘുശർമ്മ ആശുപത്രി സന്ദർശിച്ചപ്പോൾ പല വീഴ്ചകളും കണ്ടെത്തിയിരുന്നു ആറ് കോടി രൂപയുടെ ഫണ്ട് ആശുപത്രിക്കുണ്ടായിരുന്നിട്ടും പല ഉപകരണങ്ങളും നന്നാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തൃശ്ശൂരിൽ അന്താരാഷ്ട്ര കാർഷിക പ്രദർശനമായ വൈഗ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഗവർണർ

കേരളത്തിന്റെ കാർഷിക രംഗം മികച്ചതാണ് കൃഷിക്ക് വലിയ പ്രചാരണം നൽകുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ

ഇത് തടയാനാവശ്യമായ ആധുനിക സാങ്കേതിക ് വിദ്യകൾ സാധാരണ കർഷകർക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മറ്റൊരു മത്സരത്തിൽ അൻഷു മാലിക് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ പൂജ ധണ്ടയെ പരാജയപ്പെടുത്തി